ബലിതർപ്പണം പിതൃക്കൾക്ക് ആത്മശാന്തിക്കായി നാളെ കർക്കടക വാവുബലി ബലിതർപ്പണത്തിനായി സംസ്ഥാനത്തെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി

തിരുവനന്തപുരത്ത് ശംഖുമുഖം തിരുപ്പല്ലം വർക്കല പാപനാശം അരുവിക്കര എന്നിവിടങ്ങളാണ് പ്രധാന പബ്ലിതർപ്പണ കേന്ദ്രങ്ങൾ കൊല്ലം തിരുമുല്ലവാരം മുണ്ടയ്ക്ക്ക്ക് പാപനാശം അഷ്ടമുടി തൃവേണി സംഗമം എറണാകുളത്ത് ിആ്ലുവ മണപ്പുറം ചേലാമറ്റം നെട്ടൂർ മലപ്പുറം തിരുനാവായി വയനാട് തിരുനെല്ലി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ്ടു നട്ടക്കും തിരുവനന്തപുരം ജില്ലയിൽ കർശനമായി ഹരിതച്ചട്ടം പാലിച്ച് ബലിതർപ്പണ ചടങ്ങൂകൾ നടത്തണമെന്ന് ജില്ലാ കളക്ടർ കെ

ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വരയ്ക്കൽകടൽപ്പുറത്ത് നാളെ വൈകിട്ട് അഞ്ചു മുതൽ മറ്റെന്നാൾ രാവിലെ ആറു മണിവരെ ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു ബലിതർപ്പണ കേന്ദ്രങ്ങളിലേയ്ക്ക് കെ എസ് ആർ ടി സി പുലർച്ചെ മുതൽ പ്രത്യേക സർവ്വീസ് നടത്തും